നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ദ്ഘാടനം ചെയ്തു

കോൺഗ്രസിന്റെടു നേതൃത്വത്തിൽ കൊൽക്കത്തയിലെ പ്രതിപക്ഷ റാലിയ്യ്ന്ന് ബിജെപി

ഉറപ്പാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി തമിഴ്നാട് പ്രതിരോധ ഇടനാഴി ശ്രീമതി നിർമ്മലാ സീതാരാമൻ നാളെ ഉദ്ഘാടനം ചെയ്യും

രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റ് കണ്ടു കെട്ടി

ഖേലോ ഇന്തൃ ഗെയിംസിൽ മഹാരാഷ്ട്ര മുന്നേറ്റം തുടരുന്നു

മൃദുല ശക്തിയായുള്ള ഇന്ത്യയുടെ ആവീർഭാവത്തിൽ ഇന്ത്യൻ സിനിമ വലിയ പങ്കാണ് വഹിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സിനിമാ വ്യവസായത്തെ ശാക്തീകരിക്കാൻ ഗവണ്മെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ദാദ്ര നഗർ ഹവേലിയിലും സൂറത്തിലും വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തിരി തെളിച്ചു കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

മ്യൂസിയത്തിന്റെ പ്രത്യേകതകൾ മഹാരാഷ്ട്രാ മുഖൃമന്ത്രി ദേവേന്ദ്ര ഭട്നവിസ് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു ഉദ്ഘാടനചടങ്ങിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണമുന്ത്രി രാജ്യവർദ്ധൻ രാത്തോഡും സന്നിഹിതനായിരുന്നു

ദാമൻ ദാദ്ര നഗർ ഹവേലിയിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ലോഹഫലകം അദ്ദേഹം പ്രകാശനം ചെയ്തു നേരത്തെ ഗുജറാത്തിലെ സൂറത്തിലെ ഹസീറയിൽ ആരംഭിച്ച ഹോവിറ്റ്സർ ആയുധ നിർമ്മാണശാലയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

ഝാർഖണ്ഡിന്റെ വികസനത്തിൽ പങ്ക് വഹിക്കാൻ ഖാദി ബോർഡ് ചെയർമാൻ സഞ്ജയ് സേത്ത് നിക്ഷേപകരെ ആഹ്വാനം ചെയ്തു

സൈനിക പോലീസിൽ ഇരുപത് ശതമാനം സീറ്റുകൾ വനിതകൾക്കായി മാറ്റിവയ്ക്കുമെന്ന് ഇന്നലെ പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ ട്വീറ്റ് ചെയ്തിരുന്നു സൈനിക പോലീസിൽ സ്ത്രീകളെ വിനൃസിക്കാനുള്ള തീരുമാനം സായുധ സേനയിൽ അവരുടെ പ്രാധാനൃം വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു

തമിഴ്നാട് പ്രതിരോധ ഇടനാഴി ശ്രീമതി നിർമ്മല സീതാരാമൻ നാളെ ഉദ്ഘാടനം ചെയ്യും

ജെ

ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് ബി ജെ

പാർട്ടി വക്താവ് രാജീവ് പ്രതാപ് റൂഡിയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് മോദി വിരുദ്ധ നിലപാടുകളാണ് പ്രതിപക്ഷ റാലിയിൽ ഉയർന്നു വന്നതെന്നും എന്നാൽ പാർട്ടി ഇതിനെ ഭയക്കുന്നില്ലെന്നും ശ്രീ

റാലി സംഘടിപ്പിച്ചത് പ്രതിപക്ഷ ക്യാമ്പുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്ര മോദി ഗവൺമെന്റിനെതിരായി തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ സംഘടിപ്പിച്ചു റാലിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഡസനിലധിക്കു് ന്നേതാക്കളും പങ്കെടുത്തു

ഇന്നു രാത്രി വരെയാണ് ഭക്തർക്ക് ദർശനത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുക അത്താഴപൂജയ്ക്ക് ശേഷം ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് നടക്കും പന്തളം രാജ പ്രതിനിധിയുടെ സന്നിധ്യത്തിൽ മകരവിളക്ക് സമാപനം കുറിച്ച് മാളികപ്പുറത്ത് ഗുരുതി നടക്കും ആചാരപ്രകാരം നാളെ രാവിലെ പന്തളം രാജ പ്രതിനിധിയുടെ അയ്യപ്പ ദർശനത്തിനു ശേഷം മകരവിളക്ക് തീർഥാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടക്കും

കേന്ദ്ര അനുമതി ലഭ്യമാക്കാനുള്ള ഇടപെടലുകൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്

ടി

ടി ആശുപത്രി എ ബ്ലോക്കിന്റെ സമഗ്ര നവീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കു മായാണ് തുക അനുവദിച്ചത്

കേരളം നിലവിലെ ജേതാക്കളായ വിദർഭയെ നേരിടുമ്പോൾ കർണാടകയുടെ എതിരാളി സൌരാഷ്ട്രയാണ് ഉത്തർപ്രദേശിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് സൌരാഷ്ട്ര സെമിയിൽ കടന്നത്

രാവിലെ നടന്ന മത്സ്ർത്തിൽ മഹാരാഷ്ട്ര മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ ഓരോ വെങ്കല മെഡലുകൾ നേടി

മുംബൈ പൂനെ എന്നിവിടങ്ങളിൽ നിന്നും കള്ളപ്പണ നിരോധന നിയമ പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി മതസ്പർദ്ദ ഉളവാക്കും വിധം ഇയാൾ പ്രഭാഷണങ്ങൾ നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി ഇസ്ലാമിക് റിസർച്ച് ഫൌണ്ടേഷനിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു

ആഴ്ചയിൽ രണ്ട് ദിവസം സർവ്വീസ് നടത്തുന്ന ട്രെയിൻ റെയിൽമന്ത്രി പിയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു റെയിൽവേയുടെ കേന്ദ്ര സോണിലൂടെ കടന്നുപോകുന്ന ആദ്യ രാജധാനി എക്സ്പ്രസ്സ് ആണിത് ഗുജറാത്തിലൂടെയുള്ള ട്രാക്കിനു പകരം മധ്യപ്രദേശിലൂടെയാണ് ട്രെയിൻറ്സ്ട്ർവ്വീസ് നടത്തുന്നത്